ആത്മനിർഭർ ഭാരത് ബഹിരാകാശ ദൌത്യത്തിലും സ്ഥകാര്യ പങ്കാളിത്തം നിയന്ത്രണം ഐ

രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ഇന്ത്യയിലേക്ക്

സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവർ

ആത്മനിർഭർ ഭാരത് എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയല്ലെന്ന് ശ്രീമതി നിർമലാ സീതാരാമൻ പറഞ്ഞു ഘടനാപരമായ പരിഷ്കാരങ്ങൾ വഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നവയ്ക്കാണ് നാലാംഘട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്

മത്സരം സുതാര്യത സ്വകാര്യ മേഖല പങ്കാളിത്തം എന്നിവയാണ് സർക്കാർ അവതരിപ്പിക്കുന്നത് വരുമാനം പങ്കിടൽ സംവിധാനം ആവിഷ്കരിക്കുമെന്നും ഏതൊരാൾക്കും കൽക്കരി ബ്ലോക്കിനായി ലേലം വിളിച്ച് പൊതു വിപണിയിൽ വിൽക്കാനാകുമെന്നും മന്ത്രി വൃക്തമാക്കി

രാജ്യത്തിന്റെ ബഹിരാകാശ പ്പരൂർവ്ഷണ പ്രവർത്തനങ്ങളിൽ സ്വകാര്യ കമ്പനികളിൽ സഹ്യിഴത്രികരായി പരിഗണിക്കുമെന്ന് ധനമന്ത്രി വൃക്തമാക്കി

എന്നാൽ ഐ എസ് ആർ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഒരു റിപ്പോർട്ട്

ഭക്ഷ്യ സംരക്ഷണത്തിനും ആണവോർജം ഉപയോഗിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു രാജ്യത്തെ ആറു വിമാനത്താവളങ്ങൾ കൂടി സ്വകാര്യവത്കരിക്കും

ചിലയിന ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഇറക്കുമതി നിരോധിക്കും

നിക്ഷേപം ഫാസ്റ്റ് ട്രാക്ക് രീതിയിലാക്കാൻ നയം പരിഷ്കരിക്കുമെന്നും നിക്ഷേപ സൌഹൃദ സംസ്ഥാനമെന്ന് കണ്ടെത്തി സംസ്ഥാനങ്ങളെ റാങ്ക് ചെയ്യുമെന്നും ധനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പദ്ധതികൾ വൈകാൻ കോവിഡ് കാര്ണ്മായിട്ടുണ്ട് റെറാ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത പദ്ധത്തിക്ൽക്ക് പൂർത്തിയാക്കാൻ ആറു മാസം കാലാവധി നീട്ടിനൽകുമ്മെന്ന് മന്ത്രി അറിയിച്ചു

പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട ആനുകൂല്യങ്ങളിൽ മൂന്നു മാസത്തെ സൌജന്യഗ്യാസ് വിതരണം പ്രധാന പദ്ധതിയായിരുന്ന കാരൃം മന്ത്രി ചൂണ്ടിക്കാട്ടി

പ്രധാൻ പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും നന്ദി അറിയിച്ചു

വിശദാംശങ്ങളുമായി സോഫിയ ഡാനിയേൽ

രോഗബാധ രൂക്ഷമായി തുടരുന്ന മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഇപ്പോഴും രോഗമുക്തി നേടുന്നവരുടെ നിരക്ക് ദേശീയ ശരാശരിയിലും താഴെയാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

തൊഴിലാളികൾ ഉൾപ്പെടെ വിദേശരാജൃങ്ങളിൽ കുടുങ്ങിയവർ വിസാ കാലവധി അവസാനിച്ചവർ ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടുന്നവർ ഗർഭൂിണികൾ മുതിർന്ന പൌരന്മാർ എന്നിവർക്കാണ് മുൻഗണന നൽകുക

ഇവരെല്ലാം സംസ്ഥാനത്തിന് പുറത്ത് നിന്നും വന്നവരാണെന്ന് മന്ത്രി കെ

ഇന്ത്യ അമേരിക്ക സൌഹൃദം കൂടുതൽ ദൃഢമാകുന്നുവെന്ന് ട്രംപിന്റെ ട്വീറ്റ് പങ്കുവച്ചുകൊണ്ട് ശ്രീ നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു